ഉച്ചകോടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും വിവിധ ദക്ഷിണേഷ്യൻ രാജ്യ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും

ഒറ്റ ഇരട്ട അക്ക വാഹന ന്റിയ്ന്ത്രണം ഇന്ന് മുതൽ

സി

പി ഉച്ചകോടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും വിവിധ ദക്ഷിണേഷ്യൻ രാജ്യ നേതാക്കളുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും വിശദാംശങ്ങളുമായി സുവർണ

ദക്ഷിണേഷ്യൻ ഉച്ചകോടിയിലെ സഹകരണത്തിന്റെ മുന്നോട്ടുള്ള നടപടികളുടെ വിശകലനം പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങൾ സംബന്ധിച്ച കാഴ്ചപ്പാടുകളെക്കുറിച്ചുള്ള ചർച്ചു എന്നിവയാണ് ഇന്നത്തെ ഉച്ചകോടിയിലെ പ്രധാന അജണ്ട ആസിയാൻ രാഷ്ട്രങ്ങളും ഇന്ത്യയും ചൈനയും ഉൾപ്പെടുന്ന ആസിയാന്റെ സ്വതന്ത്ര വ്യാപാര കരാർ പങ്കാളികളും തമ്മിലുള്ള സമഗ്ര സ്വതന്ത്ര കരാർ ആണ് ആർ

ഇന്ത്യയുടെ കിഴക്കനേഷ്യൻ നയപ്രകാരം തന്ത്രപ്രധാനമാണ് ആർ

സുസ്ഥിര വികസനം സംബന്ധിച്ച പ്രത്യേക പരിപാടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ വിയറ്റ്നാം പ്രധാനമന്ത്രി നുയാൻ ഷിയാൻ ഫുക് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസ് എന്നിവരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും

ഇതിനു മുന്നോടിയായി ഇന്നലെ നടന്ന സൈനിക ഡ്രില്ലിൽ രാജ്യർക്ഷാമന്ത്രി രാജ്നാഥ് സിങ്ങ് ഉസ്ബെക്കിസ്ഥാൻ പ്രതിരോധ ്യ മന്ത്രി മേജർ ജനറൽ ബാഖോദിർ നിസാമോവിക്കും പങ്കെടുത്തൂ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം ലക്ഷ്യമിട്ടുള്ള സൈനിക്കു അഭ്യാസം ഈ മാസം വരെ തുടരും

സൈനിക വൈദ്യശാസ്ത്രം സൈനിക വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും മൂന്നു ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിട്ടുണ്ട്

നഗരപ്രദേശങ്ങളിലെ ഭൂചലനവും സുരക്ഷയും എന്നതാണ് പരിപാടിയുടെ വിഷയം

യൂണിവേഴ്സിറ്റി കാമ്പസിൽ നടക്കുന്ന സമ്മേളനത്തിൽ ചാൻസലർ കൂടിയായ മേഘാലയ ഗവർണർ തദാഗത് റോയ് രാഷ്ട്രപതിയെ അനുഗമിക്കും മുഖ്യമന്ത്രി കെ

യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എസ്

ശ്രീവാസ്തവ അദ്ധ്യക്ഷത വഹിക്കും

കൊൽക്കത്തയിൽ കൊൽക്കത്തയിലെ ബിശ്വ ബംഗ്ലാ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സദ്ദസ്സിനെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും ഈ മാസം എട്ട് വരെയാണ് ശാസ്ത്ര കോൺഗ്രസ് സമൂഹത്തിൽ ശാസ്ത്ര അവബോധം സൃഷ്ടിക്കുകയാണ് കോൺഗ്രസ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ രാജ്യത്തിന്റെ നേട്ടം എടുത്തുകാട്ടുന്നതോടൊപ്പം ആ നേട്ടം പൊതുസമൂഹത്തിന് എങ്ങനെ കൈമാറാം എന്നതും നാലുദിവസത്തെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കും

അസമിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവരെ പുറത്താക്കാനുള്ള പ്രാഥമിക നടപടിയായി ഇതിനെ കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു

വായൂമലിനീകരണം അതിജീവിക്കാൻ ഡൽഹി ഗവൺമെന്റ് ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി സുവർണ്ണ

രജിസ്റ്റർ നമ്പർ ഒറ്റ അക്കത്തിൽ അവസാനിക്കുന്ന വാഹനങ്ങൾക്ക് ഇരട്ട അക്കമുള്ള ദിവസങ്ങളിൽ നിരത്തിൽ പ്രവേശനമില്ല

എന്നാൽ അടിയന്തര സേവനങ്ങൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സ്ത്രീകൾ ഒറ്റയ്ക്കുള്ള വാഹനങ്ങൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും നിയന്ത്രണം ബാധകമായിരിക്കില്ലു

പുകമഞ്ഞ് രൂക്ഷമായതോടെ ഇന്നലെ ഡൽഹിയിലേക്കുള്ള നിരവധി വിമാനങ്ങൾ തിരിച്ചുവിട്ടിരുന്നു

മലിനീകരണ തോതിനെ കുറിച്ച് പഠിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും അയൽ സംസ്ഥാനങ്ങളിൽ കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിനെതിരെയുള്ള ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കും

മിശ്ര കാബിനറ്റ് സെക്രട്ടറിയുമായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു കാബിനറ്റ് സെക്രട്ടറി കാര്യങ്ങൾ ദിവസേന വിലയിരുത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു

എ

എ ചുമത്തി രണ്ടു പേരെ ആൻ ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പ്പിണ്കുയി വിജയൻ യുഎപിഎയോടു യോജിപ്പില്ലെന്നും പോലീസ് നട്പടി ഗവൺമെന്റ് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട്ടു പറഞ്ഞു എൽഡിഎഫ് നിലപാട് യുഎപിഎക്ക് എതിരാണ് പ്രെ്ലീസ് നടപടി ഗവൺമെന്റ് പരിശാധിക്കും ഇതിനുശേഷം ആവശ്യമായ നടപടി സ്ഥീകരിക്കും പോലീസ് ചാർജ് ചെയ്താൽ ഉടൻ യുഎപിഎ വകുപ്പ് നിലവിൽ വരില്ല അത് ഗവൺമെന്റും യുഎപിഎ കമ്മീഷനും പരിശോധിച്ചശേഷമേ നിലവിൽ വരൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിനിടെ അറസ്റ്റിലായ രണ്ടുപേരുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും

എസ് ആർ ടി

എസ് ആർ ടി

മെഡിക്കൽ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിലില്ലാതെ അവധി അനുവദിക്കില്ലെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി

എസ് ആർ ടി സി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഗതാഗതമന്ത്രി എ

ശ്രീനഗർ ജില്ലയിൽ നിരുത്തുകളിൽ സ്വകാര്യ വാഹനങ്ങൾ കൂടുതലായി ഓടിത്തുടങ്ങിയെന്നു് ആകാശവാണി ലേഖകൻ അറിയിക്കുന്നു

മഹാരാഷ്ട്രയിൽ കാലം തെറ്റി പെയ്ത മഴയെത്തുടർന്ന് കർഷകർക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ദേശീയ ദുരിതാശ്ചാസ നിധിയിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശ്രീ

നാലു ദിവസം നീണ്ട പരിപാടിയുടെ സമാപന ചടങ്ങിൽ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ സെക്രട്ടറി അമിത് ഖാരെ പങ്കെടുത്തു

ഇമ്രാൻഖാൻ രാജിവയ്ക്കാൻ ആവശ്യപ്പെട്ട് മൌലാന നൽകിയ സമയപരിധി ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിലാണിത്